സ്ഥിരീകരിച്ചു

ചികിത്സയിലുള്ളവരുടെ എണ്ണം രണ്ട് ലക്ഷം കവിഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കോവിഡ് ന് ചികിത്സയ്ക്ക് പൂർണ്ണസജ്ജമാക്കുമെന്ന് മന്ത്രി കെ

ശൈലജ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇന്ന് എൺപതിലേറെ പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു

മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം നാളെ

കോവിഡ് പ്രതിസന്ധിയിൽ വാക്സിനുകളുടെ പ്രാധാനൃം വളരെ വലുതാണെന്ന് ശ്രീ നരേന്ദ്രമോദി മൻ കി ബാതിൽ വൃക്തമാക്കി കേന്ദ്ര സർക്കാരിൽ നിന്ന് സൌജനൃ വാക്സിൻ നൽകുന്ന പദ്ധതി ഇപ്പോൾ നടക്കുന്നുണ്ടെന്നും അത് തുടരുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി കേന്ദ്ര ഗവൺമെന്റിന്റെ സൌജന്യ വാക്സിൻ വിതരണത്തിന്റെ ആനുകൂലൃങ്ങൾ കഴിയുന്നത്ര ആളുകൾക്ക് നൽകണമെന്ന് പ്രധാന്യമിന്തി സംസ്ഥാനങ്ങളോട് അഭ്യർത്ഥിച്ചു വാക്സിനെക്കുറിച്ച് ഒരു് തരത്തിലുള്ള മിഥ്യാ ധാരണയിലും ജനങ്ങൾ അകപ്പെട്ടരുതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

പ്താൻറുകൾ എത്രയും വേഗം പ്രവർത്തനക്ഷമമാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ജില്ലാ ആശുപത്രികളിലാണ് പ്താൻറുകൾ സ്ഥാപിക്കുന്നത്

അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്കെതിരെയും ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കാത്തവർക്കെതിരെയും കർശനമായ നടപടി സ്വീകരിക്കുന്നുണ്ട് സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം ചർച്ചചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇനിയുളള ദിവസങ്ങളിൽ സ്വീകരിക്കേണ്ട നിയന്ത്രണങ്ങളെ കുറിച്ചും നടപടികളെ കുറിച്ചും യോഗം ചർച്ച ചെയ്യും

ശൈലജ കോവിഡ് രോഗികളുടെ എണ്ണം വർധിച്ച സാഹചര്യത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ കോവിഡ് ചികിത്സയ്ക്ക് പൂർണസജ്ജമാക്കുമെന്ന് മന്ത്രി കെ

കോവിഡ് യോഗം എറണാകുളം എറണാകുളം ജില്ലയിൽ കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ എസ്

ജനപ്രതിനിധികളുടെ ആവശ്യങ്ങളും നിർദേശങ്ങളും യോഗം ചർച്ച ചെയ്തു പ്രാദേശിക തലത്തിലുള്ള നിരീക്ഷണവും ഇടപെടലുകളും ശക്തമാക്കും

ജില്ല മെഡിക്കൽ ഓഫീസറാണ് ഇക്കാര്യം അറിയിച്ചത്

പത്തനംതിട്ട ജില്ലയിൽ കോവിഡ് രോഗം രൂക്ഷമായ കുന്നന്താനം വെച്ചൂച്ചിറ പള്ളിക്കൽ എന്നീ പഞ്ചായത്തുകളിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ നിരോധനാജ്ഞ പ്രാബല്യത്തിൽ വരും

കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ജില്ലാഭരണകൂടം നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ആകാശവാണി പ്രതിനിധി നസീർ ബാബു

മഴ കേരളത്തിൽ വിവിധ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത